റാപ്പിഡ് ടെസ്റ്റുകൾ ഉപയോഗിച്ചുള്ള പരിശോധന ്രണ്ട് ദിവസത്തേയ്ക്ക് നിർത്തിവയ്ക്കണമെന്ന് ഐസ്റ്റിഎംആർ

സ്ഥിരീകരിച്ചതാ്യി മുഖ്യമന്ത്രി പിണറായി വിജയൻ

സത്യപ്രതിജ്ഞ ചെയ്തു

ഇവിടെ ലോക്ഡൌൺ മെയ് മൂന്ന് വരെ നീട്ടിയിട്ടുണ്ട്

ഇത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ ശേഷം ദ്രുത പരിശോധന നടത്തിയാൽ മതിയെന്നും ഐ സി എം ആർ

ദ്രുത പരിശോധനയുടെ ഫലത്തിന്റെ കൃത്യതയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഉണ്ടെന്നതിനാലാണ് ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും ക്യാൻസർ വൃക്ക രോഗങ്ങൾ എച്ച് ഐ

തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സ മുടങ്ങരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഇതിൽ കണ്ണൂരിൽ രോഗം സ്ഥിരീകരിച്ച ഒമ്പത് പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്

പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ച സാഹചരൃത്തിൽ ലോക്ഡൌൺ കർശനമായി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

സമ്പദ് വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിനായി മാർഗ്ഗ രേഖ തയ്യാറാക്കാൻ മന്ത്രാലയം പ്രത്യേക സമിതികൾ നിയോഗിച്ചു വനവിഭവങ്ങളും മറ്റും ശേഖരിക്കുന്നതിന് ആദിവാസി വിഭാഗങ്ങൾക്ക് ലോക്ഡൌണിൽ ഇള്ളിപ്പ് അനുവദിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയവൂക്കും മാർഗ്ഗ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്

പട്ടിക വർഗ്ഗ വിഭാഗങ്ങൾക്കായുള്ള ഹോസ്റ്റലുകൾ സ്ഥാപനങ്ങൾ സ്കൂളുകൾ എന്നിവ കോവിഡ് മാർഗ്ഗരേഖകൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി

സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉടൻ ഒരു മന്ത്രിതല സമിതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയോഗിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു

കൊറോണയ്ക്കെതിരായി ആരംഭിക്കാനും മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട അവസ്ഥ കൈവരിക്കാനും ഇന്ത്യയ്ക്ക് സാധിച്ചതെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു

ഭരണഘടനാപരവും സാമൂഹികവും മതപരപ്പൂമായ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പീരന്മാർക്കും ഇന്ത്യൻ ഭരണ ഘടന ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു

കോവിഡ് പോരാളികളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വീഡിയോ സന്ദേശത്തിലാണ് മുഖ്യമന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് ഇവരെ സംസ്ഥാനം രക്ത സാക്ഷികളായി കണക്കാക്കുമെന്നും ഇവരുടെ ശവസംസ്ക്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്നും ശ്രീ

നരോത്തം മിശ്ര തുളസി സിലാവത്ത് കമൽ പട്ടേൽ ഗോവിന്ദ്സിംഗ് രജ്പുത് മീനാ സിംഗ് എന്നിവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്

ഒരു റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ ക്ക്വർസ് ബാധിതരുള്ള അമേരിക്കയിൽ രോഗികളുടെ എണ്ണം പ്രിക്ട് ലക്ഷത്തോടടുക്കുകയാണ്

ഏഷ്യയിൽ നാല് ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് രോഗബാധയുണ്ടായത്

കൂടുതൽ മലയാളികൾക്ക് രോഗം സ്ഥീരികരിച്ച കുവൈറ്റിൽ മരണസംഖ്യയിൽ കാര്യമായ വർദ്ധനയില്ലാത്തത് ആശ്വാസമായി